രാജസ്ഥാനിലും തെലങ്കാനയിലും പ്രചാരണം ഊർജ്ജിതം

പൊതുവെ സമാധാനപരം

ബംഗ്ലാദേശ് കോടതിയിൽ വിചാരണ തുടങ്ങി

നിയമസഭയിലേക്കും ന്റിളെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയുള്ളൂർ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു മധ്യപ്രദേശിൽ ഭരണകക്ഷിയായ ബി ജെ പിയും പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം

സുരക്ഷാ മിസോറാമിൽ കോൺഗ്രസ് ബി ജെ പി മിസോ നാഷണൽ ഫ്രണ്ട് എൻ പി എം എന്നീ പാർട്ടികൾ തമ്മിലാണ് പ്രധാന മത്സരം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിസാമാബാദിലും മെഹ്ബൂബ് നഗറിലും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

രാജസ്ഥാനിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തെത്തി വിവിധ റാലികളിൽ പങ്കെടുക്കുന്നു

വോട്ടെണ്ണൽ ഇന്ന് തന്നെ നടക്കും

ജമ്മു ഡിവിഷനിലെ കിഷ്ത്വാറിലും കനത്ത പോളിംഗാണ് റിപ്പോർട്ട് ചെയ്തത്

ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അറോറ തിരഞ്ഞെട്ടൂപ്പ് കമ്മീഷണറായി നിയമിതനയത്

അന്തരിച്ച മഞ്ചേശ്വരം എംഎൽഎ പി

അബ്ദുൾ റസാക്കിന് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

നാളെയും മറ്റന്നാളും വിവിധ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി അയയ്ക്കണമെന്ന പ്രമേയങ്ങൾ സഭ പരിഗണിക്കും

വൈകിട്ട് അഞ്ച് മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ

കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്ക്ാ്ൻ ജനതാദൾ ദേശീയ നേതൃത്വം തീരുമാനിച്ച സാഹചര്യത്തിലാണ് രാജിവച്ചത്

കമ്മീഷൻ ചെയർമാൻ എൻ

തലസ്ഥാനമായ കൊഹിമയിൽ സംഘം ഗ്രാമ നഗര മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സംഘങ്ങളുമായും ആദിവാസി സംഘടനകളുടെ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും നാളെ സംഘം മുഖ്യമന്ത്രിയേയും സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരേയും കാണും സന്ദർശനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായ വാണിജൃ രംഗത്തെ പ്രമുഖർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയും ഒരുക്കിയിട്ടുണ്ട്

അതീവ സുരക്ഷാ മേഖലയിൽ ഉണ്ടാ്യ ആക്രമണത്തിൽ ആറ് ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു ഒരു ഭീകരനെ പോലീസ് പിടികൂടി

ക്രിമിയ തീരത്ത് മോസ്കോയുമായുള്ള നാവിക പ്രതിരോധത്തെ തുടർന്നാണ് നടപടി

നാളെ മുതൽ പട്ടാള ഭരണം നടപ്പാക്കുന്നതിന് അനുകൂലിച്ച് യുക്രൈൻ പാർലമെന്റ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാസമിതിയുടെ അടിയന്തര യോഗം അപലപിച്ചു

മുംബൈ ഭീകരാക്രമണത്തിന്റെ പത്താം വാർഷികത്തിൽ പുറത്തിറക്കിയ സന്ദേശത്തിലാണ് ട്രംപ് നിലപാട് അറിയിച്ചത്

അടുത്തേക്ക് എത്താന്ടെ അനുവദിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു

ഇരു സേനാംഗങ്ങൾക്കും പുറമെ കസ്റ്റംസ് വകുപ്പ് തമിഴ്നാട് പൊലീസിന്റെ കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് റവന്യു ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നിവയിലെ ഉദ്യോഗസ്ഥരും അഞ്ച് ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് വോയിസ് കഴിഞ്ഞ മെയ് അഞ്ചിന് കാലിഫോർണിയയിലെ യുണൈറ്റഡ് ലോഞ്ച് അലയൻസിന്റെ ആറ്റ്ലസ് ഫൈവ് റോക്കറ്റിലാണ് ഇൻസൈറ്റ് ലാന്റർ പ്പൂന്നുയർന്നത് ഇന്റിരീയൽ എക്സ്പ്ലറേഷൻ യൂസിംഗ് സീസ്മിക് ഇൻവെസ്റ്റിഗേഷൻ ജിയോഡെസി ആന്റ് ഹീറ്റ് ട്രാൻസ്പോർട്ട് എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഇൻസൈറ്റ്

ചൊവ്വ ഗ്രഹത്തിലുണ്ടാകുന്ന പ്രകമ്പനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള മാപിനിയും ഈ ബഹിരാകാശ പേടകം പ്രവർത്തനസജ്ജമാക്കും അഞ്ച് മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കാൻ ശേഷിയുള്ള ജർമ്മൻ നിർമ്മിത ഡ്രില്ലും പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഇൻസൈറ്റിന് രണ്ട് വർഷമാണ് ആയുസ്സ്

പ ടൂർണമെന്റ് നാളെയാണ് ആരംഭിക്കുന്നത്

ചലച്ചിത്രമേളയിൽ ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഐക ത്രീഫെയ്സസ് ഭയനാകം തുടങ്ങി ഒരു പിടി നല്ല ചിത്രങ്ങളാണ് ഇന്ന് അഭ്രപാളിയിൽ എത്തുക പനാജിയിൽ നിന്ന് പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ എ ചന്ദ്രശേഖർ

എസ് എൽ